ത കേന്ദ്ര റെയിൽവേ സഹമന്ത്രി സുരേഷ് അംഗഡി കോവിഡ് ബാധിച്ച് മരിച്ചു

ത ഇന്ന് നാഷണൽ സർവ്വീസ് സ്കീം ദിനം

എസ് പുരസ്കാരങ്ങൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വിതരണം ചെയ്യും ത ഗവൺമെന്റിന്റെ നൂറുദിന പരിപാടിയിൽ ഉൾപ്പെടുത്തി സുപ്രധാന റോഡ് പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ഇത് കോവിഡ് വ്യാപനം തടയാനും സാധാരണ പ്രവർത്തനങ്ങൾ തുടരാനും സംസ്ഥാനങ്ങൾക്ക് സഹായകമാവുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കോവിഡ് വ്യാപനം രൂക്ഷമായ മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് കർണാടക തമിഴ്നാട് പഞ്ചാബ് ഉത്തർ പ്രദേശ് ഡൽഹി എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി വീഡിയോ കോൺഫറൻസ് വഴി സ്ഥിതി അവലോകനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി

കോവിഡിനെ നേരിടാൻ ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു കോവിഡിനെതിരായ പോരാട്ടത്തോടൊപ്പം സാമ്പത്തിക മേഖലയിൽ ധീരമായ മുന്നേറ്റവും രാജ്യത്തിന് ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു രാര കേന്ദ്ര റെയിൽവെ സഹമന്ത്രി സുരേഷ് അംഗഡി കോവിഡ് ബാധിച്ച് മരിച്ചു

ന്യൂഡൽഹിയിലെ എയിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകീട്ടാണ് അന്ത്യം

സുരേഷ് അംഗഡിയുടെ മരണം തന്നെ ഞെട്ടിച്ചുവെന്ന് ഉപരാഷ്ട്രപതി എം

കർണാടകയിൽ ബി

പിയെ ശക്തിപ്പെടുത്താൻ കഠിനാധ്വാനം ചെയ്ത നേതാവായിരുന്നു സുരേഷ് അംഗഡിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ രാജ്നാഥ്സിങ് പിയൂഷ് ഗോയൽ പ്രകാശ് ജാവ് ദേക്കർ മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡ ബി

പി അധ്യക്ഷൻ ജെ പി നദ്ദ ബി

പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തുടങ്ങിയവരും അംഗഡിയുടെ നിര്യാണത്തിൽ അനുശോചിച്ചു

രുര എറണാകുളം ജില്ലയിൽ രണ്ട് കോവിഡ് ഫസ്റ്റ്ലൈൻ ചികിത്സാ കേന്ദ്രങ്ങൾ കൂടി പ്രവർത്തന സജ്ജമായി

ഇതോടെ ജില്ലയിലെ സി

എൽ

ദരദ തൃശൂരിൽ ഹോം ഐസൊലേഷനുകൾക്ക് പ്രാധാന്യം നൽകാൻ മന്ത്രി എ

നിലവിൽ ജില്ലയിൽ ആയിരത്തിലധികം രോഗികളാണ് ഹോം ഐസൊലേഷനിൽ കഴിയുന്നത്

പാളയം മാർക്കറ്റ് അടച്ചു ഇന്ന് നാഷണൽ സർവീസ് സ്കീം ദിനം

കേന്ദ്ര ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിൽ നോട്ട് മീ ബട്ട് യൂ എന്ന ആപ്തവാക്യത്തിലാണ് എൻ എസ് എസ് പ്രവർത്തിക്കുന്നത്

എസ് അവാർഡുകൾ തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചു രുമ ലോക്സഭയും രാജ്യസഭയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അനിശ്ചിത കാലത്തേക്ക് പിരിഞ്ഞു ഇതോടെ എട്ട് ദിവസം നീണ്ട പാർലമെന്റ് വർഷകാല സമ്മേളനം അവസാനിച്ചു

കോഴിക്കോട്ടു നിന്ന് വയനാട്ടിലേക്ക് ബദൽ പാതയാണ് ഇതിൽ പ്രധാനമെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി ജഷിത കുമാരി

നിർമാണ മേൽനോട്ടം ഏറ്റെടുക്കാമെന്ന് ഇ ശ്രീധരൻ സമ്മതിച്ചിട്ടുണ്ടെന്നും എട്ടുമാസത്തിനകം പണി പൂർത്തിയാക്കാനാവുമെന്ന് അദ്ദേഹം അറിയിച്ചതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി